പങ്കെടുക്കാൻ വൻ തിരക്ക്

തോൽവി അന്താരാഷ്ട്ര ടെന്നീസ് ഫെഡറേഷൻ വനിതാ ടൂർണമെന്റിൽ സീസണിലെ ആദ്യ കിരീടം ഇന്ത്യൻ താരം അംഗിത റെയ്നയ്ക്ക്

കൂടുതൽ വിവരങ്ങളുമായി ഷീജാ ഗണേശ്

ഔദ്യ്യോഗ്രീക ഉദ്ഘാടനം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവ്വഹിക്കും

യിൽ നിന്ന് മുന്നൂറിലധികം പ്രവാസികൾ മേളയുടെ ഭാഗമാകും നവ ഭാരത നിർമ്മാണത്തിൽ പ്രവാസികളുടെ പങ്ക് എന്നതാണ് ഈ വർഷത്തെ വിഷയം മൌറീഷ്യസ് പ്രധാനമന്ത്രിയുൾപ്പെടെ ഇന്ത്യൻ വംശജരായ നിരവധി ലോക നേതാക്കൾ വിഷയത്തിൽ ്തങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കും സമാപന സമ്മേളനത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രവാസി ഭാരതീയ പുരസ്കാരങ്ങൾ സമർപ്പിക്കും

കേന്ദ്രമന്ത്രിമാരായ സുഷമ സ്വരാജ് രാജ്യവർദ്ധൻ റാത്തോർ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ ന്യൂലാന്റ് നോർവെ ഭരണകൂടങ്ങളെ പ്രതിനിധീകരിക്കുന്ന കൻവൽ ജീത് സിങ് ഹിമാൻഷു ഗുലാത്തി എന്നിവരുമായി വേദി പങ്കിടും

സമത്വ സമൂഹം എന്ന ബി

അംബേദ്കറിന്റെ സ്വപ്ന സാക്ഷാത്ക്കാരമാണ് ഇതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

രാജ്നാഥ് സിങ് പറഞ്ഞു

ഇതിനാവ്ൾ്യമായ ്ഗവൺമെന്റ് ഉത്തരവുകൾ പുറപ്പെടുവിച്ചതായി ആദ്ദേഹം പൂനൈയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു

എമ്മും അടക്കമുള്ള കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലടക്കം സംവരണം നടപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി വൃക്തമാക്കി

പ്രതിരോധ മേഖയിൽ സ്വയം പര്യാപ്തത എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഇന്നലെ ഹൈദരാബാദിൽ നടന്ന ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം സൈബർ യുഗത്തിൽ ആധുനിക സാങ്കേതിക വിദ്യ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തി സേനാ രംഗത്തും മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു പ്രതിരോധ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിലും ആധുനിക സാങ്കേ തിക വിദ്യ ഉപയോഗപ്പെടുത്തണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു

ഇവരുടെ പക്കൽ നിന്നും വൻതോതിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു ബോഗോദർ സറിലെ മേഖലയിൽ നിന്നാണ് ശനിയാഴ്ച ഇവരെ പിടി കൂടിയത് ഹസാരിബാഗ് കൊണ്ടേർമ തുടങ്ങിയ ജില്ലകളിൽ പുതിയ നക്സൽ സംഘടന സജീവമാണെന്ന് ഔദ്യോഗിക വൃത്ത ങ്ങൾ അറിയിച്ചു

സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിനും ഉത്തർവിട്ടു

പൌഷ മാസത്തിലെ പൂർണിമയോടനുബന്ധിച്ചാണ് ചടങ്ങ് കുംഭമേളയുടെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന കല്പ് വാസിന്റെ തുടക്കമായാണ് പൌഷ് പൂർണിമ കണക്കാക്കുന്നത് കല്പ് വാസ് കാലയളവിൽ ഭക്തർ ഒരു മാസക്കാലം സംഗമത്തിനു സമീപമുള്ള ചെറു കൂടാരങ്ങളിൽ താമസിച്ച് മൂന്ന് തവണ കുളിക്കുകയും ദിവസേന ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിച്ചുമാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്

രണ്ടു കോടിയിലധികം ഭക്തരാണ് പങ്കെടുക്കുന്നത്

ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഒരു വ്യവസായിക സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനാണ് അസ്സാം സ്റ്റാർട്ടപ്പ് ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇത്തരം സ്റ്റാർട്ടപ്പ് കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ അവരുടെ വളർച്ചയും വികസനവും വേഗത്തിലാക്കാനും കഴിയുന്നു

വ്യവസായിക വളർച്ചയ്ക്ക് ഉതകുന്ന എല്ലാ സാഹചര്യങ്ങളും നിക്ഷേപകർക്ക് പ്രദാനം ചെയ്യാൻ ഗവൺമെന്റ് ശ്രമങ്ങൾ നടത്തുകയാണ് എന്ന് സോനോവാൾ പറഞ്ഞു ഈ സംരംഭങ്ങളിലൂടെ അസ്സാം സംസ്ഥാനം ത്രെക്കു കിഴക്കൻ ഏഷ്യയുടെ വ്യവസായ കേന്ദ്രമാകുമെന്നുംആദ്ദേഹം പറഞ്ഞു

ഇന്നലെ നടന്ന നിർണ്ണാ യക മൽസരത്തിൽ നെത്ർല്ന്റ്സ് താരം അറാങ്സ റസ് നെ നേരി ട്ടുള്ള സെറ്റുകൾക്കാണ് അംകിത പരാജയപ്പെടുത്തിയത്

ടൂർണമെന്റിൽ നാല് മുന്തിയ താരങ്ങളെ പരാജയപ്പെടു ത്തിയാണ് സീസണിലെ തന്റെ ആദ്യ കിരീടം അംകിത സ്വന്തമാക്കിയ ത് അടുത്ത മാസം കസാകിസ്ഥാനിൽ നടക്കുന്ന ഫെഡറേഷൻ കപ്പിലും അംകിത മൽസരിക്കും

കൂടുതൽ വിവരങ്ങളുമായി ഷീജ ഗണേശ്

മൂന്നാം സീഡായ ഫെററർക്കെ തിരെ സിറ്റ്സിപാസ് മികച്ച പ്രകടനമാണ് പുറത്തിറക്കിയത്

ഇതാദ്യമായാണ് ഒരു ്ഗ്ഗീക്ക് താരം ഓസ്ട്രേലിയൻ ഓപ്പണിന്റെ കാർട്ടർ ഫൈനലിൽ എത്തുന്നത് കഴിഞ്ഞ ഓസ്ട്രേലി യൻ ഓപ്പൺ ഫൈനലിൽ ഫെഡ്രറ്റോട് പൊരുതി തോറ്റ മരിൻ സിലിച്ച് വനിതകളിൽ രണ്ടാര്യ ന്റ്മ്പർകാരിയും നിലവിലെ വിമ്പിൾഡൺ ജേത്രിയുമായി ആഞ്ജലിക് കെർബർ സൂപ്പർ ലേഡി മരിയ ഷറപ്പോവ എന്നിവ്വിരും ഞായറാഴ്ച പോരാട്ടത്തിൽ ്നിലം പൊത്തി സിലിച്ചിനെ സ്പെയിനിന്റെ റോബർട്ടോ ബാറ്റിസ്റ്റ അഞ്ച് സെറ്റ് നീണ്ട പോരാട്ടത്തിലാണ് വീഴ്ത്തിയത്

നിലവിലെ വിമ്പിൾടൺ ചാമ്പ്യനായ കെർബറിനെ അമേരിക്ക യുടെ സീഡ് ചെയ്യപ്പെടാത്ത താരം ഡാനിയേല കോളിൻസ് നേരിട്ടുള്ള സെറ്റുകൾക്ക് അട്ടിമറിക്കുകയായിരുന്നു

കമ്പനി ചെയർമാൻ കൂടിയായ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിമാനകമ്പനികളുടെ യോഗം നടക്കുമെന്ന് മാനേജിങ്ങ് ഡയറക്ടർ വി തുളസീദാസ് അറിയിച്ചു കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയ അധികൃതരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് വിദേശ വിമാന കമ്പനികളുടെ സർവ്വീസ് തുടങ്ങുന്നതടക്കമുള്ള കാര്യങ്ങൾ യോഗത്തിന്റെ പരിഗണനക്ക് വരും ഇന്ത്യൻ കമ്പനികൾക്ക് പ്രുറമെ തെക്ക്കിഴക്കൻ ഏഷ്യ ഗൾഫ് രാജ്യങ്ങളിലെ വിമാന കമ്പനികളെയെല്ലാം യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്

കഴിഞ്ഞ വർഷവും ഇതേ മേഖലയിൽ സമാധാന ദൌത്യ സംഘത്തിന് നേരെ അക്രമങ്ങൾ അരങ്ങേറിയിരുന്നു ഇതിൽ രണ്ട് സമാധാന പ്രവർത്തകർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു

എൻ ദൌത്യത്തിന്റെ ഭാഗ മായി മാലിയിൽ വിന്യസിച്ചിട്ടുള്ളത്